പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി കേന്ദ്രഗവൺമെന്റിന് കോടതി നോട്ടീസ് അയച്ചു

വകുപ്പിന്റെ പരിശോധനയിൽ ഇട്പെടുമെന്ന് കേന്ദ്രം അറിയിച്ചതായി സഹകരണീ മന്ത്രി

സഹകരണവകുപ്പിന്റെ പദ്ധതി ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി

അമ്പാടിക്കണ്ണൻമാർ വൈകിട്ട് അണിനിരക്കും മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കിയതിനെതിരായ മുത്തലാഖ് ഹർജികൾ പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി ഇക്കാര്യത്തിൽ നിലപാട് തേടി കോടതി കേന്ദ്രഗവൺമെന്റിന് നോട്ടീസ് അയച്ചു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജംഇയ്യത്തുൽ ഉലമ ഹിന്ദ് എന്നീ സംഘടനകളുടെ ഹർജികളിലാണ് നോട്ടീസ് ജസ്റ്റിസുമാരായ എൻ വി രമണ അജയ് റസ് തോഗി എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് തീരുമാനം മുത്തലാഖ് നിയമം ഭരണ ഘടനാവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം മുത്തലാഖ് നിരോധിച്ചുകൊണ്ടുള്ള ബിൽ കഴിഞ്ഞ മാസമാണ് പാർലമെന്റിൽ പാസാക്കിയത് കടകംപള്ളി സുരേന്ദ്രൻ കാർഷിക വായ്പ സംഘങ്ങളിൽ ആദ്യായ്നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ കടന്നുകയറ്റം നടത്തുന്നത് പരിശ്രോധിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമല സീതാരാമൻ ഉറപ്പുനൽകിയിരിായി സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു ഡ്രിൽഹിയിൽ കേന്ദ്രധനമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് ഉറപ്പ് ലഭിച്ചത്

ഇക്കാരൃത്തിൽ സ്വീകരിക്കുന്ന നടപടികൾ കേരളത്തിന്റെ റസിഡന്റ് കമ്മീഷണറെ അപ്പപ്പോൾ ധരിപ്പിക്കുന്നതിന് ഉദ്യോഗസ്ഥർക്ക് കേന്ദ്രമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു

ഏലംകുളം വില്ലേജിലെ പാറക്കൽമുക്ക് പാതായ്ക്കര വില്ലേജിലെ തോട്ടശേരി എന്നിവിടങ്ങളിലാണ് ഉരുൾപൊട്ടലുണ്ടായത് ഇക്കഴിഞ്ഞ ഒമ്പത് പത്ത് തീയതികളിലെ അതിതീവ്ര മഴയിൽ ഇവിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു തുടർന്ന് റവന്യൂ സംഘം നടത്തിയ പരിശോധനയിലാണ് ഉരുൾപൊട്ടലാണെന്ന് സ്ഥിരീകരിച്ചത് പരിശോധന സംസ്ഥാനത്ത് ഉരുൾപ്പൊട്ടലുണ്ടായ മേഖല്പ്കളിൽ വിദഗ്ദ്ധ സംഘം സന്ദർശനം തുടരുന്നു

വിവിധ മേഖലകളിലെ പരിശോധനക്ക് ശേഷമാണ് വിദ്ദ്ധ്ധസംഘം ഇക്കാര്യം അറിയിച്ചത് വിള്ളൽ മലപ്പുറം ജില്ലയിലെ പുല്ലങ്കോട് എസ്റ്റേറ്റിൽ വിള്ളൽ കണ്ട ഭാഗങ്ങൾ ജിയോളജി സോയിൽ കൺസർവേഷൻ വിഭാഗം പരിശോധിച്ചു വനത്തോട് ചേർന്ന സ്ഥലത്താണ് ഭൂമിയിൽ വിള്ളൽ കാണപ്പെട്ടത്

ജില്ലയിലെ അപകടമേഖലകളെക്കുറിച്ച് ദുരന്തനിവാരണ അതോറിറ്റിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും

ഇന്നലെ മുതലാണ് ഈ മേഖലയിൽ കടൽക്ഷോഭം തുടങ്ങിയത്

തിങ്കളാഴച രാവിലെ കണ്ണൂരിൽ ജില്ലാ കളക്ടർ ടി

സുഭാഷ് ഫ്ളാഗ് ഓഫ് ചെയ്യും

അഷ്ടമിരോഹിണിയോട് അനുബന്ധിച്ച് സംസ്ഥാനത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് പിറന്നാൾ ആഘോഷത്തിനായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ ദർശിക്കാൻ ഗുരുവായൂരിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകുകയാണ്

ശോഭയാത്ര നടക്കും

ജയരാജൻ ചെക്ക് കേസുമായി ബന്ധപ്പെട്ട് യുഎഇയിൽ അറസ്റ്റിലായ തുഷാർ വെള്ളപ്പാള്ളിയുടെ മോചനത്തിന് മുഖ്യമന്ത്രി കേന്ദ്ര ഗവൺമെന്റിന് കത്തയച്ചതിൽ തെറ്റില്ലെന്ന് മന്ത്രി ശ്ചിപ്പിട്ട്

ഗൾഫിൽ അറസ്റ്റിലായവരിൽ എല്ലാപ്പ്ര്യേയും പോലെയല്ല തുഷാർ അദ്ദേഹത്തിന്റെ അറസ്റ്റിൽ അസ്വാഭാവികതയുണ്ട് ബിജെപിക്കാരന്റെ സംരക്ഷണവും മുഖ്യമന്ത്രിയിൽ നിക്ഷിപ്തമാണെന്നും മന്ത്രി പറഞ്ഞു പോലീസ് പിടിയിൽ കായംകുളത്ത് ബാറിലുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ രണ്ട് പ്രതികൾ കൂടി പിടിയിൽ കൂട്ടുപ്രതികളായ കായംകുളം സ്വദേശികളായ സാഹിൽ അജ്മൽ എന്നിവരെയാണ് ഇന്ന് പുലർച്ചെ സേലം റെയിൽ വേ സ്റ്റേഷനിൽ നിന്ന് ആർപിഎഫിന്റെ സഹായത്തോടെ പിടികൂടിയത്

കഥാ പുരസ്കാരം പയ്യന്നൂർ മലയാള ഭാഷാ പാഠശാലയുടെ ഗൾഫ് കുടുംബം ഏർപ്പെടുത്തിയ പ്രഥമ കഥ പുരസ്കാരത്തിന് ആലപ്പുഴ വെൺമണിയിലെ സി